മൂന്ന് ദേശീയപാത പദ്ധതികളുടെ ന്ദിർമാണോദ്ഘാടനം വൈകിട്ട് തലശ്ശേരിയിൽ കേന്ദ്രമൃന്തിയും മുഖ്യമന്ത്രിയും ചേർന്ന് നിർവഹിക്കും കാഞ്ഞങ്ങാട്ട് നൂറ് ഏക്കർ ഭൂമിയിൽ അത്യാധുനിക സൌക ര്യങ്ങളോടെ വ്യവസായ പാർക്ക് ആരംഭിക്കുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ ശബരിമലയെ കലാപക്കാരുടെ കേന്ദ്രമാക്കി മാറ്റാൻ അനു വദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തരെ കളളക്കേസിൽ കുടുക്കി ജയിലിലടക്കുന്ന തിനെതിരെ ബിജെപി ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതി ഷേധ പരിപാടികൾ സംഘടിപ്പിക്കും നാലാംഏകദിനത്തിൽ ഇന്ത്യക്ക് കൂറ്റൻ ജയം

രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രൈഡോക്കിന് കൊച്ചി കപ്പൽശാ ലയിൽ കേന്ദ്ര ഉപരിതലഗതാഗത മന്ത്രി നിതിൻ ഗഡ്ഗരിയും മുഖ്യ മന്ത്രി പിണറായി വിജയനും ചേർന്ന് ഇന്ന് തറക്കല്പിടും മൂന്ന് ദേശീയപാതാ പദ്ധതികളുടെ നിർമാണ ഉദ്ഘാടനം തലശ്ശേരിയിൽ വൈകിട്ട് കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് നിർവഹിക്കും

തെക്കുകിഴക്കൻ ഏഷ്യയിലെ എല്ലാ കപ്പൽ അറ്റകുറ്റപ്പണികൾക്കും മാരിടൈം ഹബ്ബായി കൊച്ചി മാറും

കാസർക്കോട്ടെയും പാലക്കാട്ടെയും പദ്ധതികൾ വീഡിയോ കോൺഫ്രൻസിംഗ് വ്യഴിയാവും ഉദ്ഘാടനം ചെയ്യുക കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനം മന്ത്രിമാർ ജനപ്രതിനി ധികൾ തുടങ്ങിയവർ പങ്കെടുക്കും ഉദ്ഘാടനത്തിനായെത്തുന്ന മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും വൈകിട്ട് കണ്ണൂർ വിമാനത്താവളത്തിലാണ് ഇറങ്ങുക കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ വിമാനത്തിനിറങ്ങാൻ അനുമതി നൽകി യത് സംസ്ഥാന ഗവൺമെന്റല്ലെന്നും കണ്ണൂർ അന്താരാഷ്ട്ര വിമാന ത്താവള കമ്പനിയാണെന്നും കിയാൽ അധികൃതർ അറിയിച്ചു വിമാ നത്താവളത്തിൽ നിന്ന് ഷെഡ്യൂൾഡ് ഫ്ളൈറ്റുകൾ ഡിസംബർ ആറിന് ശേഷമാണ് അനുവദിക്കാവുന്നതെങ്കിലും ലൈസൻസ് ലഭിച്ച വിമാനത്താവളമെന്ന നിലയിൽ നോൺ ഷെഡ്യൂൾഡ് ഫ്ളൈറ്റുക ളുടെ സർവീസിന് ആര് അഭ്യർത്ഥിച്ചാലും അനുമതി നൽകാവുന്ന താണെന്നും കിയാൽ തിരുവനനന്തപുരത്ത് അറിയിച്ചു കാഞ്ഞങ്ങാട്ട് റവന്യൂ വകുപ്പ് വ്യവസായ വകുപ്പിന് കൈമാ റുന്ന നൂറ് ഏക്കർ ഭൂമിയിൽ അത്യാധുനിക സൌകര്യങ്ങളോടെ വൃവ സായ പാർക്ക് ആരംഭിക്കുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു കാസർക്കോട്ട് ഉദുമ ടെക്സ്റ്റൈൽസ് മില്ലിന്റെ പ്രവർത്തനോദ്ഘാ ടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന മുഴുവൻ കൈത്തറി യൂണിറ്റുകളും പ്രവർത്തനക്ഷമമാക്കുമെന്നും മന്ത്രി പറഞ്ഞു കാസർകോട് ജില്ലയുടെ വ്യാവസായിക പിന്നാക്കാവസ്ഥ മാറ്റി യെടുക്കുന്നതിന് ഗവ

വിശ്വാ സികളുടെ ഒപ്പമാണ് അത് കലാപ്പകാരികൾ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്ന ണിയുടെ ജനകീയ റാലി ഉദ്ഘാട്ടന്ം ചെയ്യുകയായിരുന്നു മുഖ്യമ ന്ത്രി

നെ മറിച്ചിടുമെന്ന് പറഞ്ഞ അമിത്ഷാ കേരളം അതിന് പറ്റിയ മണ്ണല്ല എന്ന് കാര്യം മനസ്സിലാക്കണമെന്നും മുഖ്യമന്ത്രി പറ ഞ്ഞു കോൺഗ്രസ് സിയം നാശത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരി ക്കുന്നതെന്നും ബി ജെ പി യെ അവർ ഇടത്താവളമായാണ് കാണു ന്നതെന്നും പിണ്റായി കുറ്റപ്പെടുത്തി അയ്യപ്പഭ്ക്തരെ കളളക്കേസിൽകുടുക്കി ജയിലിലടയ്ക്കാൻ സംസ്ഥാന ഗവ നടത്തുന്ന നീക്കത്തിനെതിരെ ബിജെപി ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും തിരുവനന്തപുരത്ത് ഡിജിപി ഓഫീസിന് മുന്നിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിളള രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ നിരാഹാര സമരം നടത്തും ഒ രാജഗോപാ ലൻ എം എൽഎ ഉദ്ഘാടനം ചെയ്യും എല്ലാ ജില്ലാകേന്ദ്രങ്ങളിലും എസ് പി ഓഫീസുകളിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട് ശബരിമല സംഘർഷ ഭൂമിയാക്കുകയും വർഗീയത വളർത്തു കയും ചെയ്യുന്ന ആർഎസ്എസ് ബിജെപി സിപിഐഎം കള ളക്കളിക്കെതിരെ യുഡിഎഫ് ഇന്ന് വൈകിട്ട് കോഴിക്കോട്ട് വിശ ദീകരണയോഗം സംഘടിപ്പിക്കും പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും യുഡിഎഫ് നേതാക്കൾ പങ്കെ ടുക്കുമെന്ന് കൺവീനർ ബെന്നി ബഹനാൻ തിരുവനന്തപുരത്ത് അറിയിച്ചു ശബരിമല ക്ഷേത്ര ദർശനത്തിന് സ്ത്രീക്കും പ്പുരുഷനും തല്യ അവകാശമുണ്ടെന്ന് മന്ത്രി ഇ പി ജയരാജൻ കാഞ്ഞങ്ങാട്ട് പറ ഞ്ഞു എൽഡിഎഫ് ബഹുജനമാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാ രിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടി യായി പത്തനംതിട്ട ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആഭി മുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൂരക്ഷായാത്ര ഇന്നും തുടരും പമ്പ മുതൽ സന്നിധാനം വരെയാണ് ഇന്ന് സുരക്ഷായാത്ര എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും നവകേരളം നിർമി ക്കുക തന്നെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറ ഞ്ഞു നവകേരള നിർമാണത്തിന് കലാകാരന്മാരുടെ കൈത്താങ്ങ് വി ഷാൽ ഓവർക്ം സംഗീത സായാഹ്നം കൊച്ചിയിൽ ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

കേരളത്തിന്റെ പുനർനിർമാണം കൂട്ടായ്മയിലൂടെ സാധ്യമാ ക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൊച്ചിയിൽ അബുദാബി ശക്തി അവാർഡ് വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗ്രാമങ്ങളുടെ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് സംസ്ഥാ ന ഗവ നൽകുന്നതെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോ ജനയിൽ പെടുത്തി പുനരുദ്ധാരണം നടത്തുന്ന കണ്ണൂർ ജില്ലയിലെ വടുവംകുളം ബങ്കണപറമ്പ് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പ്രളയാനന്തര പുനർനിർമ്മാണത്തിൽ റോഡുകൾക്കും പാല ങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നതെന്ന് മന്ത്രി സുധാകരൻ തളിപറമ്പ് കുപ്പത്ത് പറഞ്ഞു കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി അഭിവൃദ്ധിപ്പെടുത്തുന്ന റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പ്രളയ നിവാരണ പ്രവർത്തനങ്ങളിൽ കുടുംബശ്രീയുടെ സേവനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് ഐക്യർാഷ്ട്രസഭയുടെ ദുരന്ത അപകട സാധൃത ലഘൂകരണ വിഭാഗ തിലവൻ ഡോ മുരളി തുമ്മാരുകുടി കൊച്ചിയിൽ പറഞ്ഞു കുടുംബശ്രീ വനിത കൾക്കായി നടത്തിയ പരിപാടിയിൽ സ്ത്രസാരിക്കുയായിരുന്നു അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിനെതിരായി നാലാം ഏകദിനത്തിൽ ഇന്ത്യക്ക് കൂറ്റൻജയം

അവസാനത്തെയും അഞ്ചാമത്തെയും ഏകദിനം മറ്റന്നാൾ തിരുവന്തപുരം കാര്യവട്ടത്ത് നടക്കും പരമ്പര ആർക്കെന്ന് നിർണയിക്കുന്ന നിർണായക മത്സരത്തിനായി ഇരു ടീമുകളും ഇന്ന് ഉച്ചക്ക് തിരുവനന്തപുരത്തെത്തും ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷ ഡ്പൂർ എഫ് സി മത്സരം സമനിലയിൽ പിരിഞ്ഞു ജംഷഡ്പൂ രിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി

പഴയ രീതിയിലു ളള ഡ്രൈവിംഗ് പരിശീലനവും ടെസ്റ്റും ഇനി അനുവദിക്കില്ലെന്നും ആധുനിക രീതിയിലുളള യാത്രാസംവിധാനം ഉപയോഗിച്ചാകും ടെസ്റ്റ് നടത്തുകയെന്നും മന്ത്രി വൃക്തമാക്കി കാസർകോട് വെള്ള രിക്കുണ്ട് താലൂക്കിൽ അനുവദിച്ച ആർടിഒ ഓഫീസ് ഉദ്ഘാ ടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി

മത്സ്യവിഭവ സംരക്ഷണത്തിനായി കേരളം നടത്തിയ മാതൃ കാപരമായ ഇടപെടലുകൾ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അവരുടെ പങ്കാ ളിത്തം തേടുകയുമാണ് പരിപാടിയുടെ ലക്ട്യ്മെന്ന് മന്ത്രി ജെ മേഴ്സി ക്കുട്ടിയമ്മ കൊച്ചിയിൽ അറിയിച്ചു

ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാർണം സ്ലാബിടുന്നതിന് കാലതാമസം വന്നാൽ ഉദ്യോഗസ്ഥർ സ്വന്തം പോക്കറ്റിൽ നിന്ന് നഷ്ടപരിഹാരം നൽകേണ്ടിവരുമെന്ന് കൃമ്മീഷൻ ജുഡീഷ്യൽ അംഗം പി മോഹന ദാസ് ഉത്തരവിൽ പറഞ്ഞു സ്ത്രീകൾ ജോലിചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കംപ്പയിന്റ് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ടെന്ന് സ്ഥാപനഉടമകൾ ഉറപ്പാക്കണമെന്ന് സംസ്ഥാന വനിതാകമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ പറഞ്ഞു ഇടുക്കി കലക്ടറേറ്റിൽ നടന്ന മെഗാ അദാലത്തിൽ സ്വകാര്യ സ്കൂളുകളുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവേയാണ് അവർ ഇക്കാര്യം പറഞ്ഞത് കണ്ണൂർ ആറളം ഫാമിൽ ആദിവാസി സ്ത്രീ കാട്ടാനയുടെ ചവി ട്ടേറ്റ് മരിച്ചു

ഇന്ന് പുലർച്ചെ ഒരു മണി യോടെയായിരുന്നു കാട്ടാനയുടെ ആക്രമണമുണ്ടായത് കണ്ണൂർ മുഴപ്പിലങ്ങാട് കടലിൽ കുളിക്കുന്നതിനിടെ കോളജ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു എറണാകുളം തൃക്കാക്കര സ്വദേശി മുഹ മ്മദ് സാദത്താണ് മരിച്ചത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കുന്നതിനിടെ മരത്തിൽ നിന്നും പുഞ്ചപ്പാടത്തേക്ക് ചാടിയ യുവാവ് ചെളിയിൽ പുതഞ്ഞ് മരിച്ചു തഴവ കണ്ടൻകുളങ്ങര വീട്ടിൽ വിഷ്ണുവാണ് മരിച്ചത് കൊല്ലം പരവൂർ തെക്കുംഭാഗം കടൽ തീരത്ത് ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുള്ളതായി സംശയിക്കുന്നു കൊല്ലം ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും ശുചിത്വമിഷന്റെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ ഇതുസംബന്ധിച്ച് ജില്ലാതല വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി പിഡിപി ചെയർമാൻ അബ്ദുന്നാസർ മഅ്ദനി ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തും അസുഖബാധിതയായ മാതാവിനെ കാണാൻ ബംഗളുരു്വിലെ വിചാരണ കോടതി ജാമ്യ വ്യവസ്ഥ യിൽ ഇളവ് അനൂവദിച്ചതിനെ തുടർന്നാണിത് വാഹനമാർഗ്ഗം ശാസ്താംകോട്ടയിലെത്തുന്ന അദ്ദേഹം ആശുപത്രിയിൽ കഴിയുന്ന മാതാവിനെ കാണും അടുത്ത്മാസം നാല് വരെ കേരളത്തിൽ കഴിയാനാണ് മഅ്ദ നിക്ക് കോട്തി അനുമതി നൽകിയത്

മുൻഗണനേതര വിഭാഗത്തിന് നൽകുന്ന അധികവിഹിതം തോട്ടം തൊഴിലാളികൾക്കുളള സൌജന്യ അരി വിതരണം നോർമൽ പഞ്ചസാര മണ്ണെണ്ണ എന്നി വയുടെ വിതരണമടക്കമാണ് നീട്ടിയത് വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലയിലെ നാല് പഞ്ചായത്തുകൾ വയോ സൌഹൃദ പഞ്ചായത്തുകളായി പ്രഖ്യാപിക്കും പെരുവെമ്പ്കരിമ്പപുതുശ്ശേരി മുണ്ടൂർ ഗ്രാമപഞ്ചായത്തുകളി ലാണ് സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ വായോ സൌഹൃദ പദ്ധതി നടപ്പാക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിലെ പട്ടികവർഗ ഗുണഭോക്താ ക്കൾക്കായി തുടങ്ങുന്ന ട്രൈബൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൽപ്പറ്റ കാര്യമ്പാടിയിൽ സി കെ ശശീന്ദ്രൻ എം എൽഎ ഇന്ന് വൈകിട്ട് നിർവഹിക്കും കുടുംബശ്രീയും മഹാ ത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പൃദ്ധ്തിയും സംയു ക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്